ടി വഴി സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ ധനമന്ത്രാലയം ആറായിരം കോടി രൂപ അനുവദിച്ചു

വാർത്തകൾ വിശദമായി കാർഷിക പരിഷ്കരണ നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷക സംഘടനകളുമായി കേന്ദ്ര ഗവൺമെന്റ് നാളെ ചർച്ച നടത്തും സമരം ഒത്തു തീർക്കാൻ ആറാം വട്ടമാണ് ഗവൺമെന്റും കർഷക സംഘടനകളും ചർച്ച നടത്തുന്നത്

കാർഷികോത്പന്നങ്ങളുടെ താങ്ങുവില വായു ഗുണനിലവാരം വൈദ്യുതി ലഭ്യത തുടങ്ങിയ വിഷയങ്ങളും കർഷക സംഘടനകളുമായി കേന്ദ്ര ഗവൺമെന്റ് ചർച്ച ചെയ്യും രംഭ ക്രൈസ്തവ സഭകൾക്കിടയിലെ തർക്കം പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ചർച്ച ഇന്നും തുടരും ഉച്ചയ്ക്ക് യാക്കോബായ സഭാ നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും യാക്കോബായ സഭ മെട്രോപൊലിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് സിനഡ് സെക്രട്ടറി തോമസ് മാർ തിമോത്തിയോസ് മാധ്യമ സെൽ ചെയർമാൻ ഡോ കുര്യാക്കോസ് മാർ തെയോഫിലോസ് എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും ഇന്നലെ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ജനുവരിയിൽ സിറോ മലബാർ സഭാ നേതൃത്വവുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തും

പ്രയാഗ് രാജിൽ ഇടനാഴിയുടെ നിയന്ത്രണ നിലയവും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും രും ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനെ പറ്റി പൊതുജന അവബോധം വളർത്താൻ ബഹുജന മാധ്യമ പ്രചരണം ആവശ്യമാണെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു പ്ലാസ്റ്റിക് അല്ല പ്രശ്നമെന്നും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതികളാണ് പ്രധാന വെല്ലുവിളിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വിജയവാഡയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ എൻജിനീയറിങ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകരെയും വിദ്യാർഥികളെയും അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി സംസ്കരിക്കുന്നതിന് ഉപയോഗപ്പെടുത്താവുന്ന മികച്ച മാതൃകകൾ പിന്തുടരേണ്ടതിന്റെ ആവശ്യകത ഉപരാഷ്ട്രപതി എടുത്തു പറഞ്ഞു

സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനും മന്ത്രിമാരായ എ കെ ബാലനും വി എസ് സുനിൽകുമാറും ഗവർണറെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച പ്രമേയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഒരു മണിക്കൂർ മാത്രമായിരിക്കും പ്രത്യേക സമ്മേളനം

ടി വഴി ഉണ്ടാകുന്ന വരുമാന നഷ്ടം നികത്താൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കുമായി ധനമന്ത്രാലയം ആറായിരം കോടി രൂപ അനുവദിച്ചു

രുര ഉള്ളിക്ക് ഏർപ്പെടുത്തിയിരുന്ന കയറ്റുമതി നിരോധനം ജനുവരി ഒന്ന് മുതൽ പിൻവലിച്ചതായി കേന്ദ്രഗവൺമെന്റ് അറിയിച്ചു എല്ലാ ഉള്ളി ഇനങ്ങൾക്കും ഇത് ബാധകമാണെന്ന് വിദേശ വ്യാപാര ഡയറക്ട്രേറ്റ് ജനറൽ അറിയിച്ചു സെപ്തംബറിലാണ് ഉള്ളി കയറ്റുമതി കേന്ദ്രം നിരോധിച്ചത്

കെ ശൈലജ കാഞ്ഞങ്ങാട്ട് പറഞ്ഞു ലോക്ക്ഡൌണിന് ശേഷം കോവിഡ് നിയന്ത്രണത്തിൽ കാസർകോട് ജില്ല മുൻപന്തിയിലാണെന്നും മന്ത്രി പറഞ്ഞു

രംഭ രണ്ട് ദിവസത്തെ ഖത്തർ സന്ദർശനം പൂർത്തിയാക്കി വിദേശകാര്യ മന്ത്രി ഡോ എസ് ജയശങ്കർ നാട്ടിലേക്ക് മടങ്ങി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ ജയശങ്കർ ഇന്ത്യ സന്ദർശിക്കാൻ അദ്ദേഹത്തെ ക്ഷണിച്ചു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ പ്രത്യേക സന്ദേശവും ഖത്തർ അമീറിന് കൈമാറി ഖത്തർ പ്രധാനമന്ത്രിയുമായും ജയശങ്കർ ചർച്ച നടത്തി

എസ് എൽ ഫുട്ബോളിൽ ബെംഗളുരു എഫ്സിക്കെതിരെ ജംഷഡ്പുർ എഫ് സിക്കു വിജയം മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് അവരുടെ വിജയം ഇതോടെ പോയിന്റ് നിലയിൽ ജംഷേദ്പുർ മൂന്നാം സ്ഥാനത്തെത്തി ഇന്ന് ചെന്നൈയിൻ എഫ്

രും ഒട്ടേറെ ദുരന്തങ്ങൾ നേരിടേണ്ടി വന്നെങ്കിലും എൽ ഡി

കേരള പര്യടനത്തിന്റെ ഭാഗമായി പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കാർഷിക ജനവാസ മേഖലകളെ ബാധിക്കാത്ത പ്രവർത്തനങ്ങളായിരിക്കും സംസ്ഥാനത്ത് നടപ്പാക്കുകയെന്ന് അദ്ദേഹം അറിയിച്ചു ജില്ലയിലെ വന്യജീവി ആക്രമണത്തിന് പ്രതിരോധ നടപടികൾ സ്വീകരിക്കും ഭാരതപ്പുഴയുടെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ ഗവൺമെന്റിനൊപ്പം നാട്ടുകാരും ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു രംഭ സംസ്ഥാന ഗവൺമെന്റിന്റെ അക്ഷയ ഊർജ്ജ അവാർഡുകൾ മന്ത്രി എം

ഊർജ്ജ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് വ്യക്തിഗത അവാർഡ് പ്രൊഫ

വ്യവസായ സ്ഥാപന വിഭാഗത്തിൽ മലയാള മനോരമ കോട്ടയം നീലാംബരി എക്സ്പോർട്ട്സ് കോഴിക്കോട് എന്നിവയും വാണിജ്യ സ്ഥാപനങ്ങളിൽ കാലിക്കറ്റ് സർവകലാശാല കോ ഓപറേറ്റീവ് സ്റ്റോഴ്സ് ലിമിറ്റഡ് ക്ലിനിക്ക് ഡെന്റിസ്ട്രി വലപ്പാട് എന്നിവയും പങ്കുവെച്ചു വിദ്യാഭ്യാസ സ്ഥാപന വിഭാഗത്തിൽ കോഴിക്കോട്ടെ നാഷണൽ സ്കിൽ ട്രെയിനിങ് കേന്ദ്രത്തിനാണ് അവാർഡ് തദ്ദേശ ഭരണ വിഭാഗത്തിൽ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തും ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കെയർ ഹോം ഹെൽപിങ് ഹാന്റ്സ് കോഴിക്കോടും അവാർഡിന് അർഹമായി

ഉച്ചയ്ക്ക് ശ്രീകാര്യത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ മന്ത്രി എം എം മണി അവാർഡുകൾ കൈമാറും രുര നിർഭയ ദിനാചരണവും ഇതുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ തുടക്കവും മന്ത്രി കെ കെ ശൈലജ ഉച്ചയ്ക്ക് ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന നിർഭയ സെല്ലിനോട് അനുബന്ധിച്ച ലീഗൽ ഡെസ്ക് പോക്സോ കുറ്റകൃത്യങ്ങൾക്കിരയായ കുട്ടികളുടെ സാമൂഹിക പുനരധിവാസ പരിപാടി എസ്

എസ് മോഡൽ ഹോം എന്നീ പദ്ധതികൾക്കാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത് രുര കേസരി വാരിക ആസ്ഥാന മന്ദിരവും മാധ്യമ പഠന ഗവേഷണ കേന്ദ്രവും രാവിലെ ചാലപ്പുറത്ത് ആർ എസ് എസ് സർസംഘ് ചാലക് ഡോ മോഹൻഭാഗവത് ഉദ്ഘാടനം ചെയ്യും കേസരി ആസ്ഥാന മന്ദിരത്തിലെ ഉദ്ഘാടന ചടങ്ങിൽ കുരുക്ഷേത്ര പ്രകാശൻ കേസരി പബ്ലിക്കേഷൻസ് എന്നിവയുടെ ഏഴു പുസ്തകങ്ങളും അദ്ദേഹം പ്രകാശനം ചെയ്യും ഉച്ചകഴിഞ്ഞ് സ്വാമി ചിദാനന്ദപുരി ഇ ശ്രീധരൻ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ദേ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ആദ്യഘട്ടം ഫെബ്രുവരി അവസാനത്തോടെ പ്രവർത്തന സജ്ജമാകുമെന്ന് മന്ത്രി കെ

എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിന് മുൻപ് പുറത്ത് വിട്ടത് അവകാശലംഘനമാണെന്ന വി ഡി സതീശന്റെ നോട്ടീസിലാണ് മന്ത്രിയെ സമിതി വിളിപ്പിച്ചത് രും സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ച ഏഴ് തദ്ദേശ വാർഡുകളിലേക്ക് പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി

രും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർപട്ടികയിൽ പേരു ചേർക്കാൻ ഇനി രണ്ടു ദിവസം കൂടി മാത്രം